ഇരുരാജ്യങ്ങളും തമ്മിലുള്ള് ബന്ധം അടുത്തകാലത്ത് വലിയ പുരോഗതി കൈവരിച്ചെന്നും അമേരിക്ക

നിർമ്മിച്ച അന്തർവാഹിനി ഐ എൻ എസ് ഖണ്ഡേരി മുബൈയിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് കമ്മീഷൻ ചെയ്തു

വോയ്സ് മാന്യന്മാരുടെകളി എന്നറിയിപ്പെടുന്ന ക്രിക്കറ്റ് കളിച്ചിരുന്ന ഒരാൾ ഐക്യരാഷ്ട്ര സഭ പൊതുസമ്മേളനത്തിൽ നടത്തിയ പ്രസംഗം മര്യാദയില്ലാത്താണ് എന്ന് ശ്രീമതിവിദിഷമൈത്ര പറഞ്ഞു ഭീകരനെന്ന് കണ്ട് ഐക്യരാഷ്ട്ര സഭ ഉപരോധം പ്രഖ്യാപിച്ച ആൾക്ക് പെൻഷൻ നൽകുന്ന രാജ്യമാണ് പാകിസ്ഥാൻ

പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഐകൃരാഷ്ട്ര സഭയിൽ നടത്തിയ പ്രസംഗം വിഭാഗീയത ഉണ്ടാക്കുന്നതിനാണ്

ഇന്ത്യലോകത്തിന് ഒരു മാതൃകയാണെന്നും ഇന്തൃയിൽ നിന്ന് ലോകത്തിന് പ്രചോദനം ഉൾക്കൊളളാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഭീകരവാദം സംബന്ധിച്ച് അംഗരാഷ്ട്രങ്ങൾക്കിടയിൽ ഐക്യം ഇല്ലെന്ന് പറഞ്ഞ ശ്രീ നരേന്ദ്രമോദി ഇത് ഐകൃരാഷ്ട്ര സഭയുടെ രൂപീകരണത്തിന്റെ അടിസ്ഥാന ത്വങ്ങളെ തന്നെ ദോഷകരമായി ബാധിക്കുമെന്നും അറിയിച്ചു ഭീകരത ഏതെങ്കിലും ഒരുരാജ്യത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ലെന്നും എല്ലാരാഷ്ട്രങ്ങളും ഒരുപ്പോലെ അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണെന്നും ശ്രീ

ശാന്തിയും സമാധാനവുമാണ് കാലഘട്ടത്തിന്റെ ആവശ്യം എല്ലാ ഭിന്നതകളും മറന്ന് ലോകം ഒന്നിക്കണ്ക്മെന്ന് സ്വാമി വിവേകാനന്ദന്റെ ചിക്കാഗോ പ്രസംഗത്തിലെ ഉദ്ബോധിനം പ്രധാനമന്ത്രി അനുസ്മരിച്ചു

ഇന്ത്യയെ ലോകത്തിന് മുന്നിൽ ഉയർത്തിക്കാട്ടുന്ന പ്രസംഗമായിരുന്നു പ്രധാനമന്ത്രിയുടേതെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു ആഗോള സാഹോദരൃം എന്ന സന്ദേശം നൽകിയ പ്രധാനമന്ത്രി ആഗോള സമാധാനത്തിന് ഇന്ത്യ നൽകിയ സംഭാവനകളെയും എടുത്ത് കാട്ടിയെന്ന് ശ്രീ അമിത് ഷാ ട്വീറ്റ് ചെയ്തു ഭീകരതയെ ചെറുക്കുന്നതിനുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയം പ്രകടമാക്കുന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ട്വീറ്റ് ചെയ്തു

സ്വന്തമായി അന്തർവാഹിനികൾ നിർമിക്കുന്ന ചുരുക്കം ചില രാജ്യങ്ങളുട്ട് പട്ടികയിൽ ഇന്ത്യ ഇടം പിടിച്ചത് അഭിമാനാർഹമാണെന്ന് രാജ്യർക്ഷാമന്ത്രി പറഞ്ഞു

നരേന്ദ്രമോദി നാളെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും

മലയാള പരിഭാഷ കേരള നിലയങ്ങളിൽ രാത്രി എട്ടിന് കേൾക്കാം

ഇവരെ വീും പ്രത്യേക അന്വേഷണസംഘത്തിൽ ഉൾപ്പെടുത്തി ജില്ലാ കളക്ടർ ഉത്തരവിട്ടു

ചിന്നക്കനാലിൽ ദേവികുളം സബ്കളകൂറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക പരിശോധനയും നടത്തിവരികയായിരുന്നു

കാണ്ഡഹാറിലെ ഒരു പോളിംഗ് സ്റ്റേഷന് സമീപമായിരുന്നു സ്ഫോടനം ഉണ്ടായത് കനത്ത സുരക്ഷയിൽ പോളിംഗ് തുടരുകയാണ്

കൂടുതൽ വിവരങ്ങളുമായി ല്ക്ഷ്മി ശ്രീ വിജയ വോയിസ് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തിൽ സംബന്ധിക്കാൻ എത്തിയതായിരുന്നു പ്രധാനമന്ത്രി ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇരുരാജൃങ്ങളും തമ്മിലുള്ള സഹകരണവും ഉഭയകക്ഷിബന്ധങ്ങളും ചർച്ചയായി

തീവ്രവാദത്തോടും ഭീകരതയോടും വിട്ടുവീഴ്ചയുണ്ടാവില്ലെന്നും ഇരുനേതാക്കളും പറഞ്ഞു സുരക്ഷാകാര്യങ്ങളിൽ ശക്തമായ സഹകരണം ഇരുരാജ്യങ്ങളും തമ്മിലുണ്ടാകും ഭൂട്ടാൻ പ്രധാനമന്ത്രി ലോതേയ് ഷെറിംഗുമായി നടന്ന കൂടിക്കാഴ്ചയിൽ ഉഭയകക്ഷിബന്ധങ്ങൾ ചർച്ചയായി വികസനം ജലവൈദ്യുതിമേഖലയിലെ സഹകരണം ജനങ്ങൾ തമ്മിലുള്ള ബന്ധം ഡിജിറ്റൽ കണക്ടിവിറ്റി സാമ്പത്തികരംഗം വിദ്യാഭ്യാസം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഐക്യരാഷ്ട്രസഭയുടെ പൊതു സമ്മേളനത്തിനിട്ട് ദക്ഷിണ മദ്ധ്യേഷ്യ കാര്യങ്ങൾക്കുള്ള അമേരിക്കയുടെ ആക്ടിംഗ്അസിസ്റ്റന്റ് സെക്രട്ടറി ആലീസ്വെൽസ് ആണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്

ഇന്ത്യയും ഐക്യരാഷ്ട്ര ഏജൻസികളും വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് പ്ലക്കാർഡുകളും മുദ്രാവാകൃങ്ങളും ഉയർത്തിയായിരുന്നു പ്രതിഷേധം

വ്യത്യ്സ്തവും വിശ്വസനീയവുമായ വാർത്തകൾ ഓൺലൈനിൽ പ്രചരിപ്പിക്കുന്നതിന് മുൻകൈയ്യെടുത്ത റിപ്പോർട്ടേഴ്സ് വിത്തൌട്ട് ബോർഡർ എന്ന സ്വതന്ത്ര പത്രപ്രവർത്തനം നടത്തുന്നതിനുള്ള സംഘടനയ്ക്ക് തുടക്കമിട്ട ദക്ഷിണാഫ്രിക്കയും കാനഡയും ഇതിൽ ഉൾപ്പെടുന്നു

രാഷ്ട്രപതി രാംനാഥ്കോവിന്ദ് പിറന്നാൾ ആശംസകൾ നേർന്നു

പ്രചാരണ പ്രവർത്തനങ്ങൾ അഞ്ചിടങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച എൽഡ്ഡീ

ഡി

എ സ്ഥാനാർത്ഥികളെ കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിക്കും